ജി റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നെങ്കിൽ അത് ഗൌരവമേറിയ വിഷയമാണെന്ന് സ്പീക്കർ പി

ജി റിപ്പോർട്ടിലെ പരാമർശത്തിൽ നിന്ന്മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഇക്കാരൃത്തിൽ ഭരണനേതൃത്വത്തിന്റെ പങ്ക് ജനങ്ങൾക്ക് ബോധൃപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതിനെ ആശ്ര യിച്ച് കേന്ദ്രം ഉചിത തീരുമാനമെടുക്കും

എ

എ പൌരത്വ നിയമ ഭേദഗ തി ശബരിമല സഭാ വിഷയം എന്നിവയിൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി നിലപാടെടുക്കുന്ന ഇരട്ടത്താപ്പ് സി

ഐ എം അവസാനിപ്പി ക്കണമെന്ന് മുരളീധരൻ ആവശ്യപ്പെട്ടു പന്തീരാങ്കാവിലെ യുവാ ക്കൾക്കെതിരെ യു

എ ചുമത്തുകയും അവർ മാവോവാദികളാണെന്ന് പറയുകയും ചെയ്യുമ്പോൾതന്നെ എൻ

എ വിഷയം അന്വേഷിക്കരുത് എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി മതപീഡനത്തിന് ഇരയാവുന്നവർക്ക് സംരക്ഷണം നൽകാനും അവർക്കൊപ്പം നിൽക്കാനുമാണ് പൌരത്വ നിയമ ഭേദഗതിയിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നതെന്നും സഹമന്ത്രി വിശദീകരിച്ചു

എയർഇന്ത്യയുടെ പുനരാരംഭിച്ച ജംബോ ബോയിംഗ് വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിക്കാനെത്തിയതായിരുന്നു കേന്ദ്ര സഹമന്ത്രി

ആദ്യ വിമാന ത്തിലെ യാത്രക്കാരെയും കൃാപ്റ്റനടക്കം ജീവനക്കാരെയും ജനപ്രതിനിധി കൾ സ്വീകരിച്ചു

പി മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ രാഘ വൻ പി വി അബ്ദുൾ വഹാബ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു

ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തിന് ജോലിയും സാമ്പത്തികൃസഹായവും നൽകുമെന്നും മന്ത്രി അറിയിച്ചു കാട്ടുതീയിൽ പെട്ട് മരിച്ച മൂന്ന് വനം വകുപ്പ് വാച്ചർമാരുടെ മൃതദേഹങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പരിക്കേറ്റയാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്

കൊടുമ്പ് സ്വദേശി അയ്യപ്പനാണ് മരിച്ചത് രുവ്പ്പെടു തൃശൂർ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റെയ്ഞ്ചിലെ തീപ്പിടിത്തം നിയന്ത്രണ വിധേയമായതായി വനംവകുപ്പും അറിയിച്ചു എന്നാൽ പലയിടത്തും ഇപ്പോഴും പുക ഉയരുന്നതിനാൽ തീ പൂർണ്ണമായും അണഞ്ഞുവെന്ന് പറ യാനാവില്ലെന്ന് പീച്ചി ഡി

ഒ രാജേഷ് പറഞ്ഞു മേഖലയിൽ കഴിഞ്ഞദി വസങ്ങളിൽ തുടങ്ങിയ കാറ്റ് ഇപ്പോഴും ശക്തമായി തുടരുകയാണ്

ദേശമംഗലം കൊറ്റമ്പത്തൂ രിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ്പ്രിന്റ് ലിമിറ്റഡിന് പാട്ടത്തിന് നൽകിയ ഭൂമിയി ലാണ് തീപ്പിടിത്തം ഉണ്ടായതും മൂന്ന് ഫോറസ്റ്റ് വാച്ചർമാർ മരണമടഞ്ഞ തും

എല്ലിനെ പലതവണ രേഖാമൂലം വനംവകുപ്പ് അറിയി ച്ചിരുന്നു വനമേഖലയിൽ ആരോ മനപൂർവ്വം തീയിട്ടതാവാം കഴിഞ്ഞദി വസത്തെ തീപ്പിടിത്തത്തിനും ദുരന്തത്തിനും കാരണമെന്ന വിലയിരുത്തലി ലാണ് വനംവകുപ്പ് ഇതേതുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുക ഴിഞ്ഞു വനംവകുപ്പിലെ ട്രൈബൽ വാച്ചർ കെ വി ദിവാകരൻ താൽക്കാ ലിക വാച്ചർമാരായ വേലായുധൻ ശങ്കരൻ എന്നിവരാണ് ഇന്നലെ തീപിടി ത്തത്തിൽ മരിച്ചത്

ജി റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നെങ്കിൽ അത് അതീവ ഗൌര വകരമായ വിഷയമാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു നിയമസഭയുടെ മേശപ്പുറത്ത് വരുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചോർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചോർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയി ട്ടുണ്ട് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അഭിപ്രായംകൂടി അറിഞ്ഞശേഷം നടപടി എടുക്കുമെന്നും സ്പീക്കർ തിരുവനന്തപുരത്ത് വൃക്തമാക്കി

ചീഫ് സെക്രട്ടറിയടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ ഇതിനെ ന്യായീകരിച്ച് സി

എം സംസ്ഥാന സെക്രട്ടറി ഏതൊരു കുറ്റവാളിയെയും പോലെ കണ്ണ ടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചെന്നിത്തല കുറ്റപ്പെടുത്തി

ഐ എക്ക് വിട ണമെന്നും ഗവൺമെന്റിന് നഷ്ടമുണ്ടായോ എന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു

ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരി ശോധന

ബി

ഹർജി ഉച്ചയ്ക്കു ശേഷം ഹൈക്കോടതി പരിഗണിക്കും രദേഷ്ടെടു സായുധ സേനയിൽ വനിതാ ഓഫീസർമാർക്കും സ്ഥിരം കമ്മീഷൻഡ് പദവി നൽകണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി ഇതിന് അപേക്ഷിച്ചു എല്ലാ വനിതകൾക്കും മൂന്നുമാസത്തിനകം പദവി നൽകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു കമാൻഡിംഗ് പദവി നൽകുന്നതിൽ സ്ത്രീകളോട് വിവേചനം പുലർത്തരുത് സ്ത്രീകളുടെ ശാരീ രിക പരിമിതികൾ സ്ഥിരം കമ്മീഷൻഡ് പദവി നൽകുന്നതിന് തടസ്റ്റമാണെന്ന ഗവൺമെന്റിന്റെ വാദം ബെഞ്ച് തള്ളി

വനിതാ സൈനികർ രാജ്യത്തിന് അഭിമാനാർഹമായ നേട്ടങ്ങൾ സമ്പാദിച്ച് നൽകിയവരാണെന്നും അവരോട് വിവേചനം പുലർത്തുന്ന മനോഭാവത്തിൽ മാറ്റം അനിവാര്യമാണെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിലയിരുത്തി

ന്യൂഡൽഹിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് അദ്ദേഹം സമ്മേളനം ഉദ്ഘാ ടനം ചെയ്തത്

പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത വികസനം ഉറപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ആഗോളതാപനം രണ്ട് ഡിഗ്രിയിൽ താഴെ നിലനിർത്താൻ ലക്ഷ്യമിടുന്ന പാരീസ് ഉടമ്പടി കൃത്യ മായി പാലിക്കുന്ന ഏതാനും രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് പ്രധാന മന്ത്രി പറഞ്ഞു ഹരിത വികസന മാതൃക സുസ്ഥിര ജീവിതരീതി പ്രകൃതി സംരക്ഷണത്തിന്റെ മൂല്യത്തിലൂന്നിയ പ്രവർത്തനം എന്നിവയിലൂടെ ഇന്ത്യ ഏറെ മുന്നിലാണെന്നും അദ്ദേഹം വൃക്തമാക്കി രദേഷ്ടെടു ശബരിമല സ്ത്രീപ്രവേശനമടക്കം വിഷയങ്ങളിൽ സുപ്രീം കോടതിയുടെ ഒൻപതംഗ വിശാല ബഞ്ചിൽ വാദം ആരംഭിച്ചു

ജോസ് കെ മാണി പക്ഷവും പിജെ ജോസഫ് പക്ഷവും രണ്ടില ചിഹ്നത്തിനായി അവകാശവാദം ഉന്നയിച്ചതോടെയാണ് വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയത് രദേഷ്ടെടു വൃക്തികളുടെ കൈവശ ഭൂമിയുടെ വിവരങ്ങളടങ്ങിയ തണ്ടപ്പേർ ആധാറുമായി ബന്ധിപ്പിക്കാൻ സംസ്ഥാന ഗവണ്മെന്റ് ഉത്തവിറക്കി ഓരോ ഭൂവുടമകൾക്കും ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ നൽകുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്

ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ച് ഗവർണറുടെ ഉത്തരവ് പ്രകാരം സംസ്ഥാന റവന്യൂ സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്

എൻ സീമയുടെ ഭർത്താവ് ജി ജയരാജിനെ സി ഡിറ്റ് ഡയറക്ടറായി നിയമിച്ചതിനെതിരെ സിഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ എം ആർ മോഹനചന്ദ്രൻ നൽകിയ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്

എ കേസിൽ അറസ്റ്റിലായ അലൻ ഷുഹൈബിനെ എൽ

ബി പരീക്ഷ എഴുതിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമറിയിക്കണ മെന്ന് കണ്ണൂർ സർവകലാശാലയോട് ഹൈക്കോടതി ആവശൃപ്പെട്ടു നാളെ യാണ് രണ്ടാം സെമസ്റ്റർ എൽ എൽ ബി പരീക്ഷ ആരംഭിക്കുന്നത്

ഉച്ചയോടെ തിരിച്ചെത്തുന്ന സുരേഷിന് കണ്ണൂർ റെയിൽവെ സ്റ്റേഷനിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്

തുടർച്ചയായി അഞ്ചാം തവണയാണ് കണ്ണൂർ ചാമ്പ്യൻമാരാ കുന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട അടുത്ത അധ്യയനവർഷം സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാൻ സ്ഥിതം പദ്ധതി നട പ്പാക്കാൻ ഗവൺമെന്റ് നിർദ്ദേശം നൽകി

കൊല്ലം മാന്നൂർ സ്വദേശി സിഞ്ചു കെ നൈനാൻ കല്ലുവാതുക്കൽ സ്വദേശി സിജു തോമസ് ശിവകാശി സ്വദേശി രാജശേഖർ എന്നിവരാണ് മരിച്ചത് വേളാങ്കണ്ണിയിൽ നിന്ന് തീർഥാടനത്തിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുകയായിരുന്ന വാഹനത്തിൽ സ്വകാര്യ ബസ് ഇടിച്ചായിരുന്നു പുലർച്ചെ അപകടം ഉണ്ടാ യത്

ഇന്നലെ രാത്രി മുതൽ കുട്ടിയെ കാണാതാവുകയായിരുന്നു ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് രദേഷ്ടെടു ഇടുക്കി തൂക്കുപാലം ഹരിത ഫൈനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതി രാജ് കുമാർ പീരുമേട് സബ്ജയിലിൽ റിമാന്റിലിരിക്കെ മരിച്ച സംഭവത്തിലെ ഒ ന്നാം പ്രതി മുൻ സബ് ഇൻസ്പെക്ടർ കെ എ സാബുവിനെ സി ബി ഐ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ സി ബി ഐയുടെ ആദ്യ അറസ്റ്റാണിത്